നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും

ആറായിരം കോടി രൂപ കൂടി നൽകി

ഇന്ത്യൻ റെയിൽവേയ്ടില്ല് ബൃഹത് റിക്രൂട്ട്മെന്റ് ന് യജ്ഞത്തിന് ഇന്ന് തുടക്കം

എസ് എൽ ഫുട്ബോളിൽ മുംബൈ എഫ്

ജംഷഡ്പൂരും സമനിലയിൽ

ഉപ്പുവെള്ള ശുദ്ധീകരണ പ്ലാന്റ് സങ്കര ഊർജോൽപാദന പാർക്ക് പാൽ സംസ്കരണ പായ്ക്കിംഗ് പ്ലാന്റ് എന്നീ പദ്ധതികൾ ഇവയിൽ ഉൾപ്പെടുന്നു

രാജ്യത്തെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജോൽപാദന കേന്ദ്രത്തിനാണ് കച്ച് ജില്ലയിലെ വിഖാഗോട്ടിൽ പ്രധാനമന്ത്രി തുട ക്കമിടുന്നത്

അധികമുള്ള വെള്ളം ജില്ലകളായ ബാച്ചാവൂ റാപ്പർ ഗാന്ധിദാം എന്നിവിടങ്ങളിലേക്കും വി തരണം ചെയ്യും കച്ചിലെ അഞ്ചാർ ഷർഹാദ് ഡയറിയിൽ പാൽ സംസ്ക്കരണത്തിനും പാക്കിംഗിനുമായി പൂർണ്ണമായി ഓട്ടോമാറ്റി ക്കായ ഒരു പ്ലാന്റിനും പ്രധാനമന്ത്രി തറക്കല്ലിടും

കച്ചിലെ ദോർഡോയിൽ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി സാംസ്ക്കാരിക പരിപാടിക്കും സാക്ഷ്യം വഹിക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

തമിഴ്നാട് തെലങ്കാന മഹാരാഷ്ട്ര ബിഹാർ എന്നിവിടങ്ങളിൽ നിന്നു വന്ന ഭാരതീയ കർഷക ഏകോപന സമിതി അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുക യായിരുന്നു അദ്ദേഹം ബില്ലിലെ ഓരോ വകുപ്പുകളിലും പ്രത്യേകമായി ചർച്ചയ്ക്കു തയ്യാറാണെന്നും ശ്രീ തോമർ കൂട്ടിച്ചേർത്തു

ഗ്രാമങ്ങളുടെയും സമൂഹത്തിലെ ദരിദ്ര വിഭാഗത്തിന്റെയും തൊഴിലാളികളുടെയും കർഷകരുടെയും ഉന്നമനത്തിനും ക്ഷേമത്തിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അതിനായി കൈക്കൊണ്ട നടപടികളെ എതിർക്കുന്നത് ശരിയല്ലെന്നും ആകാശവാണി വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു

സൈനിക ബലത്തിൽ ആരാണ് കൂടുത്തിൽ ക്രുത്തർ എന്നത് തർക്കവിഷയമായിരിക്കാം എന്നൂർ ജനാധിപത്യപരവും നയപരവുമായ സമീപനങ്ങളിൽ ഇന്ത്യ തന്നെയാണ് മുൻപന്തിയിലെന്ന കാര്യത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലെന്നും രാജ്യരക്ഷാമന്ത്രി അഭിപ്രായിപ്പെട്ടു ഇന്ത്യൻ വാണിജ്യ വ്യവസായ മണ്ഡലത്തിന്റെ വാർഷീക് സമ്മേളനത്തിൽ വിദൂര ദൃശ്യ വിനിമയ മാധ്യമത്തിലൂടെ സംസാരിക്കുകയായിരുന്നു ശ്രീ

ടിബറ്റിൽ ചൈനയിലെ ചില വികസന പ്രവർത്തനങ്ങൾ നടത്തിയതാണ് അതിർത്തിയിൽ ഇരുരാജ്യങ്ങളും മുഖാമുഖം നിലയുറപ്പിക്കാനിടയായതെന്നും അദ്ദേഹം കൊൽക്കത്തയിൽ പറഞ്ഞു

എസ് ഹിമഗിരി നീറ്റിലിറക്കി

വ്യാജ പാസ്പോർട്ടുകളും അവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ ഉപകരണങ്ങളും സ്ക്വാഡ് നടത്തിയ തെരച്ചിലിൽ കണ്ടെടുത്തു കൂടാതെ ആധാർ കാർഡ് പാൻ കാർഡ് മുദ്രപ്പത്രങ്ങൾ ചെക്ക് ബുക്കുകൾ എന്നിവ്ലയുടെ വ്യാജ പതിപ്പുകളും ബംഗ്ലാദേശി കറൻസികൾ ്മ്മാ്ബൈൽ ഫോണുകൾ ബംഗ്ലാദേശി സിം കാർഡുകൾ ഇന്ത്യൻ ്സിം കാർഡുകൾ എ ടി എം കാർഡുകൾ എന്നിവയ്ക്കും പ്പിടിച്ചെടുത്തു

കോവിഡ് ബാധിതരുടേതുൾപ്പെടെയുള്ള തപാൽവോട്ടുകളാണ് ആദ്യം എണ്ണുക

സംസ്ഥാനത്തിന് പുറത്തു നിന്നും വരുന്ന വിദ്യാർത്ഥികൾ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് ചീഫ് സെക്രട്ടറി ഓം പ്രകാശ് അറിയിച്ചു

രാത്രി ഒൻപത് മുതൽ രാവിലെ ആറ് വരെയാണ് കർഫ്യൂ

ആകെ ഏഴേകാൽ കോടിയിലധികം പേർ രോഗബാധിതരായപ്പോൾ മൂന്നു ശതമാന്റ് പേർക്ക് ജീവൻ നഷ്ടമായി

എൽ ഫുട്ബോളിൽ ്മുംബൈ എഫ്

ഇന്നലെ ഗോവയിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതമാണ് നേടിയത് മുംബൈ ഇതോടെ തുടർച്ചയായ അഞ്ച് മത്സരങ്ങളിൽ പരാജയമറിയാതെ മുന്നേറി പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു

സൂഡാൻ വിദേശകാരൃ മന്ത്രിയുടെ താത്കാലിക ചുമതല വഹിക്കുന്ന ഒമർ ഗമർ അൽദിൽ ഇസ്മായിലുമായി ശ്രീ

മുരളീധരൻ ഇതു സംബന്ധിച്ച് വീഡിയോ കോൺഫറൻസിലൂടെ ആശയ വിനിമയം നടത്തി